കേരളാ ടെന്നീസ് അക്കാദമി ഇന്ന് തിരുവനന്തപുരത്ത് ഉദ്ഘാ ടനം ചെയ്യും നാളത്തെ ആറ്റുകാൽ പൊങ്കാലക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി

ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി രാജ്നാഥ് സിങ്ങ് സംവിധാനം ഉദ്ഘാടനം ചെയ്യും

ഇതിനായി എല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യേക സഹായ കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട്

ഫീച്ചർ ഫോണുകളിൽ അഞ്ച് അല്ലെങ്കിൽ ഒൻപത് എന്നീ അക്ക ങ്ങളിൽ അമർത്തിപ്പിടിച്ചാലും അടിയന്തരൃ സഹായ കേന്ദ്രങ്ങളിൽ സന്ദേശമെത്തും ഇവിടെ നിന്ന് ജില്ലാതല കമാന്റ് കേന്ദ്രങ്ങളിലേക്ക് വിവരം ലഭിക്കുന്നതോടെ അടിയന്തര സഹായമെത്തിക്കും ഇതിനായി എമർജൻസി റെസ്പോൺസ് വാഹനമടക്കം സജ്ജീകരണം ഏർപ്പെ ടുത്തിയിട്ടുണ്ട്

ലൈംഗിക പീഡന കേസുകളിലെ അന്വേഷണ പുരോ ഗതി ലഭ്യമാക്കുന്ന പോർട്ടലും സുരക്ഷിത നഗരം നിരീക്ഷണ പോർട്ടലും ചടങ്ങിൽ ആഭ്യന്തര മന്ത്രി നാടിന് സമർപ്പിക്കും ശബരിമല വികസനം സംബന്ധിച്ച് മുഖ്യമന്ത്രി വിളിച്ച ഉന്നത തല യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും

പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കി ശബരിമല മാസ്റ്റർ പ്ലാൻ നട പ്പാക്കുന്നത് സംബന്ധിച്ച ചർച്ചയും ഇന്നുണ്ടായേക്കും മന്ത്രിമാർ ദേവസ്വം ബോർഡ് പ്രതിനിധികൾ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി യവർ പങ്കെടുക്കും കാസർകോഡ് പെരിയ കല്ല്യോട്ട് വെട്ടേറ്റ് മരിച്ച രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മൃതദേഹങ്ങൾ വൻ ജനാവലിയുടെ സാന്നിധൃത്തിൽ ഇന്നലെ രാത്രി എട്ടു മണിയോടെ സംസ്ക്കരിച്ചു പരിയാരത്ത് നിന്ന് വിലാപയാത്രയായി മൃതദേഹങ്ങൾ പെരിയയിൽ എത്തിക്കുകയായിരുന്നു

അക്രമികളെ എത്രയും വേഗം നിയമത്തിന് മുന്നിൽ എത്തിക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു കാസർകോട്ട് കൊല ചെയ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്ത കരുടെ വീടുകൾ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും മുൻ കെപി സിസി പ്രസിഡന്റ് എം

ഹസ്സനും ഇന്ന് സന്ദർശിക്കും ഇന്നലെ രാത്രി അക്രമ സംഭവങ്ങളുണ്ടായ വീടുകളും കടകളും കാണാൻ സിപിഐഎം നേതാക്കളും കാസർകോട്ട് എത്തുന്നുണ്ട് പുൽവാമയിൽ വീരമൃത്യു വരിച്ച സിആർപിഎഫ് ജവാൻ വി

വസന്തകുമാറിന്റെ കുടുംബത്തിന് നൽകുന്ന സഹായങ്ങൾ ഇന്ന് ചേരുന്ന മന്ത്രിസഭാ യോഗം തീരുമാനിക്കും വസന്തകുമാറിന്റെ ഭാര്യ ഷീനക്ക് സ്ഥിരം ജോലി നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി എ

ബാലൻ ഇന്നലെ അറിയിച്ചിരുന്നു

ചന്ദ്രശേഖരൻ അറിയിച്ചു കാർഡുകൾക്കൊപ്പം പണമായും നികുതി സ്വീകരിക്കുന്ന സമ്പ്രദായം നിലനിർത്തുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

തിരുവനന്തപൂരത്ത് അന്താരാഷ്ട്ര ആയുഷ് കോൺക്ലേവിന്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ഉദ്ഘാ ടനം ചെയ്യും ജിമ്മി ജോർജ്ജ് സ്റ്റേഡിയത്തിലെ ചടങ്ങിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ മികച്ച പദ്ധതികൾക്ക് മുഖ്യമന്ത്രി പുരസ്കാരം സമ്മാനിക്കും

രാവിലെ കലക്ടറേറ്റിലെ നാഷ ണൽ ഇൻഫർമാറ്റിക്സ് സെന്ററിലാണ് ചടങ്ങ് ഇടുക്കി ജില്ലയിലെ മൂന്ന് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടങ്ങ ളുടെ നിർമ്മാണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വീഡിയോ ലൈവ് വഴി ഉദ്ഘാടനം ചെയ്യും ഉടുമ്പൻചോല തൊടുപുഴ തോപ്രാം കുടി എന്നിവിടങ്ങളിലാണ് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് ഗവൺമെന്റിന്റെ ആയിരം ദിന ആഘോഷങ്ങളുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് കോഴിക്കോട്ട് ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ നാളെ വൈകീട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബീച്ചിൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക ഘോഷയാത്ര സംഘടിപ്പിക്കും വിവിധ വകുപ്പുകളുടെ നിശ്ചല ദൃശ്യ ങ്ങൾ ഘോഷയാത്രയിൽ ഉൾപെടുത്തിയിട്ടുണ്ട്

മോട്ടോർ വാഹന വകുപ്പിന്റെ സേഫ് കേരള പദ്ധതിക്കും ഉദ്ഘാ ടന ചടങ്ങിൽ മുഖ്യമന്ത്രി തുടക്കം കുറിക്കും ദക്ഷിണ റെയിൽവെ ജനറൽ മാനേജർ ആർ

കുൽശ്രേഷ്ഠ ഇന്ന് കണ്ണൂർ കാസർഗോഡ് മംഗളൂരു സ്റ്റേഷനുകൾ സന്ദർശിക്കും വാർഷിക പരിശോധനയുടെ ഭാഗമായാണ് സന്ദർശനം രാവിലെ ക ണ്ണൂരിലും ഉച്ചയക്ക് കാസർഗോഡും വൈകീട്ട് മംഗ്ളൂരു സ്റ്റേഷ നിലും ജനറൽ മാനേജർ എത്തും കേരളാ ടെന്നീസ് അക്കാദമി മന്ത്രി ഇ

ജയരാജൻ ഇന്ന് തിരു വനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും നിലവിലുണ്ടായിരുന്ന ടെന്നീസ് സമുച്ചയത്തെ അന്തർ ദേശീയ നിലവാരത്തിൽ നവീകരിച്ച് അക്കാദ മിയായി ഉയർത്തുകയായിരുന്നു

സിന്തറ്റിക്ക് കോർട്ട് ഗാലറി എൽ ഇഡി ഫ്ളഡ് ലൈറ്റ് തുടങ്ങിയ സൌകര്യങ്ങൾ അക്കാദമിയിൽ ഉണ്ടാ കും

അഖിലേന്ത്യാ അന്തർ സർവകലാശാല പവർ ലിഫ്റ്റിങ്ങ് ചാമ്പ്യൻഷിപ്പ് വനിതാ വിഭാഗത്തിൽ കാലിക്കറ്റ് ജേതാക്കളായി

ഗോവയിൽ ഐഎസ്എൽ ഫുട്ബോളിൽ അന്നലെ കേരളാ ബ്ലാസ്റ്റേഴ്സ് എഫ്സി ഗോവയോട് മറുപടിയില്ലാത്ത മൂന്ന് ഗോളിന് തോറ്റു സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഏഴാം തോൽവിയാണിത്

ചെന്നൈയിൽ പ്രോ വോളിബോൾ ലീഗ് സെമിയിൽ കാലിക്കറ്റ് ഹീറോസ് ഇന്ന് യു മുബൈയെ നേരിടും വൈകീട്ട് ഏഴിനാണ് മത്സരം നാളെ രണ്ടാം സെമിയിൽ കൊച്ചി ബ്ലൂ സ്പൈക്കേഴ്സ് ചെന്നൈ സ്പാർടൻസിനെ നേരിടും സംസ്ഥാനത്തെ ഗവൺമെന്റ് ആശുപത്രികൾ രാജ്യാന്തര നില വാരത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് മന്ത്രി കെ

ഗവൺമെന്റ് ആശുപത്രികളിലെ ജീവനക്കാരുടെയും സൌകര്യങ്ങളുടെയും കുറവ് പരിഹരിക്കാൻ ഗവൺമെന്റ് നടപടി യെടുത്തുവരികയാണെന്നും അവർ അറിയിച്ചു മലപ്പുറം വാഴക്കാട് കുടുംബാരോഗൃ കേന്ദ്രത്തിന് വി പി എസ് ഹെൽത്ത് കെയർ ഗ്രൂപ്പ് നിർമ്മിക്കുന്ന കെട്ടിടത്തിന് തറക്കല്ലിടുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി വയനാട് ജില്ലയിലെ വെള്ളപ്പൊക്ക കെടുതികൾ നേരിട്ട പട്ടിക വർഗ കോളനി നിവാസികളുടെ പുനരധിവാസ ഭൂരേഖാ വിതരണം ഇന്ന് കൽപ്പറ്റയിൽ മന്ത്രി എ

ബാലൻ ഉദ്ഘാടനം ചെയ്യും പട്ടിക വകുപ്പിന്റെ കോർപ്പസ് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പരിശീലന സമു ച്ചയവും മന്ത്രി ഉദ്ഘാടനം ചെയ്യും

ലക്ഷക്കണക്കിന് സ്ത്രീകൾ പങ്കെ ടുക്കുന്ന പൊങ്കാല ആഘോഷത്തിന് തിരുവനന്തപുരത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി ക്ഷേത്രവളപ്പിലും നഗര റോഡുകളിലും അടുപ്പുകൾ നിരന്നു കഴിഞ്ഞു

പൊങ്കാലയോടനുബന്ധിച്ച് നഗരത്തിൽ ഇന്നുച്ചക്ക് രണ്ട് മുതൽ നാളെ രാത്രി എട്ട് വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പൊങ്കാ ലയിൽ പങ്കെടുക്കുന്നവർക്കായി കെഎസ്ആർടിസി പ്രത്യേക സർവീസുകൾ നടത്തും സംസ്ഥാന പിന്നാക്ക വിഭാഗ വികസന കോർപ്പറേഷന്റെ പേരാമ്പ്ര ഉപജില്ലാ ഓഫീസ് ഇന്ന് മന്ത്രി എ

മന്ത്രി ടി

രാമകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി നിർവ്വഹണത്തിൽ പത്ത നംതിട്ട ജില്ലയിലെ കൊടുമൺ ഗ്രാമ പഞ്ചായത്ത് സംസ്ഥാനത്ത് ഒന്നാം സ്ഥാനത്തെത്തി മഹാത്മാ പുരസ്കാരത്തിന് അർഹമായി ജല സംര ക്ഷണത്തിനും പരിസ്ഥിതി സംരക്ഷണത്തിനും പ്രാധാന്യം നൽകി യാണ് കൊടുമൺ ഏറ്റവും കൂടുതൽ തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ച ത് സമ്പൂർണ്ണ വൈദ്യുതീകരണ പദ്ധതിയിൽ സംസ്ഥാനത്ത് കൂടുതൽ വൈദ്യുതി കണക്ഷൻ നൽകിയ ജില്ലയായി പാലക്കാടിനെ തെരഞ്ഞെടുത്തു

പാലക്കാട് മീനാക്ഷിപുരത്ത് പെൺകുട്ടികൾക്കായി അത്യാധുനിക സൌകരൃങ്ങളോടെ നിർമ്മിച്ച പ്രീ മെട്രിക് ഹോസ്റ്റൽ നാളെ മന്ത്രി എ

ബാലൻ ഉദ്ഘാടനം ചെയ്യും വിദ്യാർത്ഥിനികളുടെ കൊഴി ഞ്ഞുപോക്ക് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടാണ് ഹോസ്റ്റൽ നിർമ്മാണം ഇടുക്കി ജില്ലാ കലക്ടറായി എച്ച്

പൊതു വിദ്യാഭ്യാസ ഡയറക്ടറായി സ്ഥലം മാറിപ്പോവുന്ന ജീവൻ ബാബു വിന് പകരമാണ് നിയമനം

കൊല്ലം പരവൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ ആക്രമിച്ച സംഭവത്തിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തു യൂത്ത് കോൺഗ്രസ് പരവൂർ മണ്ഡലം പ്രസിഡന്റ് നാസറുദ്ദീനെയാണ് രാത്രി ബൈക്ക് തടഞ്ഞുനിർത്തി ആക്രമിച്ചത്

ബിജെപി കണ്ണൂർ ജില്ലാ കമ്മറ്റി അംഗം കിഴക്കേ പാലയാട്ടെ ഗോപീകൃഷ്ണൻ നിര്യാതനായി

മൂസ്ലീം ലീഗ് എസ്ടിയു നേതാവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ എൻ